സമൂഹത്തെയും സജീവമായി ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശൃകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു

കേരളത്തിൽ പുതുതായി കൊറോണ ബാധിതരില്ല കാൽ ലക്ഷത്തിലധികം പേർ നിരീക്ഷണത്തിൽ തുടരുന്നു

മഹാരാഷ്ട്രയിൽ എൻ സി

കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെ ഉൾപ്പെടെ ഏഴു പേരും തമിഴ്നാട്ടിൽ ആറുപേരും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു

കൂടുതൽ പരിശോധനാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ യോഗത്തിൽ ചർച്ച ചെയ്തു കോവിഡിനെതിരെ പോരാടാൻ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം വൃക്തികളും പ്രാദേശിക സമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു ഇക്കാര്യത്തിൽ ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കണമെന്ന് ശ്രീ മോദി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന വിവിധ സംസ്ഥാന സർക്കാരുകൾ ആരോഗ്യവിഭാഗം പാരാമെഡിക്കൽ ജീവനക്കാർ വ്യോമയാന സൈനിക വിഭാഗങ്ങൾ മുനിസിപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു കോവിഡുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിപ്പും പ്രതിരോധ നടപടികളെക്കുറിച്ചുള്ള ആശയങ്ങളും പങ്കുപ്പിയ്ക്കാൻ പ്രധാനമന്ത്രി ഇന്ന് രാത്രി എട്ടു മണിക്ക് രാഷ്ട്രത്തൃആഭിസ്പ്ബോധന ചെയ്യും

നൊവൽ കൊറ്റ്ടോണ വൈറസ് ബാധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി

ജി സി എ ഐ സി

എസ് സി ബി എസ് ഇ എൻ സി

ഇ നാഷണൽ ടെസ്റ്റിങ് ഏജൻസി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് മന്ത്രാലയം നിർദ്ദേശം നൽകി പരീക്ഷാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ അദ്ധ്യാപകർ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടിയെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നു

ഇ മെയിൻസ് പരീക്ഷ മറ്റൊരു ദിവസം നടത്താനും മന്ത്രാലയം നിർദ്ദേശിച്ചുണ്ട്

എന്നാൽ രാജ്യത്തെ വിദ്യാർത്ഥികളോ അദ്ധ്യാപകരോ മാതാപിതാക്കളോ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും അദ്ധ്യയന വർഷം കൃത്യമായി നടപ്പാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി ് രമേശ് പൊക്രിയാൽ നിഷാങ്ക് ഉറപ്പു നൽകി

ബി എസ്

ബി എസ്

വടക്ക് കിഴക്കൻ ഡൽഹി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പുനഃപരീക്ഷ പുനഃക്രമീകരിച്ചത് വീണ്ടും പുനഃക്രമീകരിക്കും സ്ഥിതി വീണ്ടും വിലയിരുത്തിയ ശേഷം ഈ മാസം അവസാനത്തോടെ പുനഃക്രമീകരണം നടത്തിയ തീയതികൾ ബോർഡ് വിദ്യാർത്ഥികളെ അറിയിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം എല്ലാ സ്കൂൾ പരീക്ഷകളും നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് തന്നെ നടക്കുമെന്ന് ഐ

എസ്

പരീക്ഷകളൊന്നും മാറ്റിവച്ചിട്ടില്ലെന്ന് ബോർഡ് സെക്രട്ടറി ന്യൂഡൽഹിയിൽ പറഞ്ഞു

അമേരിക്കയിൽ നിന്ന് അടുത്തിടെ മടങ്ങിയെത്തിയ ഒരു കുടുംബവുമായി സമ്പർക്കം പുലർത്തിയ മുംബൈ സ്വദേശികളായ സ്ത്രീകൾക്കാണ് പരിശോധനാ ഫലം പോസിറ്റീവായി കണ്ടത്

ഈ മാസം എട്ടിന് ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തിയവരായണ് ഇവർ കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ അവലോകന യോഗം കൂടി

മതപരമായ ചടങ്ങുകൾക്കായി തെലങ്കാനയിലെത്തിയ ഏഴ് ഇൻഡോനേഷ്യൻ പൌരന്മാരിലാണ് രോഗം സ്ഥിരീകരിച്ചത്

രോഗിയെ ഐസൊലേഷൻ വാർഡ്ടിൽ പ്രിവേശിപ്പിച്ചതായും രോഗവ്യാപനം തടയാനായി ആവശ്യ്മായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും സൂർക്കാർ വക്താവ് രോഹിത് കൻസാൽ ടിറ്റർ ഫ്ലൂന്ദ്രേത്തിൽ വ്യക്തമാക്കി

അന്തർ സംസ്ഥാന ബസ് സർവ്വീസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനും ഭരണകൂടം ഉത്തരവിട്ടു

സുപ്രീംകോടതിയും ഹൈക്കോടതിയും സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത് സർക്കാരിന് കരുത്തു പകരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു കൂടുതൽ പേർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ടെന്നും കർശനമായ പരിശോധന നടപടികൾ വേണ്ടതുണ്ടെന്നും അദ്ദേഹം വൃക്തമാക്കി

കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് മതപരമായ ചടങ്ങുകളിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ പരമാവധി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവധിയിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ യുള്ള ജീവനക്കാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി

തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ രോഗികളോടൊപ്പം വരുന്നവർ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വിദേശയാത്ര നടത്തുകയോ വിദേശത്തു നിന്ന് വന്നവരുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പു വരുത്തണമെന്ന് ആർ

ഇത്തരത്തിൽ ചിലർ രോഗികളെ അനുഗമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദേശം ഇത്തരക്കാർ അർബുദ രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നത് രോഗികൾക്ക് ദോഷം ചെയ്യുമെന്നും ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി

സി

തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ബിജെപി യുടെ ഉദയൻരാട്ട്ജ് ഭോസലേ ഭഗവത് കരാട് എൻ സി പി നേതാവും മുൻ സംസ്ഥാന് മന്ത്രിയുമായ ഫൌസിയ ഖാൻ ശിവ്സേനയുടെ പ്രിയങ്ക ചതുർവേദി മുൻ കോൺഗ്രസ്സ് എം

ഭരണകക്ഷിയായ എ

എം

പ്രതിപക്ഷമായ ഡി എം

മുൻ ലോക് സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഡോ

വാസൻ തുടങ്ങിയവർ വിജയിച്ചവരിൽ ഉൾപ്പെടുന്നു

ഇന്ന് അഞ്ച് ബെഞ്ചുകൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ

കോടതി മുറികളിലെ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനായാണ് നടപടി

കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് ആറാഴ്ചത്തേക്ക് നീട്ടിവയ്ക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടത് സംസ്ഥാനത്ത് നിലവിലുള്ള പെരുമാറ്റച്ചട്ടം നീക്കിയ പരമോന്നത കോടതി വോട്ടെടുപ്പിന് ി ്ലാല് ആഴ്ചയ്ക്ക് മുൻപ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷ്ടിൻക്പ്രുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കണമെന്നും നിർദ്ദേശിച്ചു

വൈറസ് ബാധ ലഘൂകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് അവർ ടെലിവിഷൻ അഭിമുഖത്തിൽ അഭ്യർത്ഥിച്ചു